ലോകത്തിന്റെ ആവശൃങ്ങൾ നിറവേറ്റാനും ഇന്തൃയ്ക്ക് കഴിഞ്ഞുവെന്ന് ഇന്ത്യ ഫിൻലാന്റ് വെർച്ചൽ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങൾ പ്രചാരണ ചൂടിൽ

കഴിഞ്ഞ വർഷം മാർച്ചിൽ ലോകസഭാ പാസാക്കിയ ബില്ലാണ് രാജ്യസഭാ ഇന്ന് അംഗീകരിച്ചത്

പരിശോധനകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല വാക്സിനേഷൻ ഫലപ്രദമായി നടപ്പാക്കി വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന വയോജനങ്ങൾക്കിടയിൽ രോഗം പകരുന്നുത് തടയുന്നതിന് അവരുടെ കേന്ദ്രങ്ങളിൽ ചെന്ന് വാക്സിനേഷൻ ക്യ്ക്കും

ചാക്കോ എൻ സി

കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ

പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും വീടുകൾ കയറിയിറങ്ങി പ്രചാരണം നടത്തുമ്പോൾ ബി ജെ

കേരളത്തിന്റെ പ്രമുഖ രാഷ്ട്രീയുട്ടു കക്ഷികൾ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകൃരിച്ചു

കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ അടുത്ത ആറിന് നടക്കുന്ന നിയമസഭാ മാസം തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങി

മട്ടന്നൂരിൽ ആരോഗ്യമന്ത്രി കെ

ശൈലജയും തളിപ്പറമ്പിൽ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എംവി ഗോവിന്ദനും ഇന്ന്പത്രിക സമർപ്പിച്ചു

സംസ്ഥാന അധ്യക്ഷൻ കെ

സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയാകും മത്സരിക്കുക

ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ പേർ വാക്സിൻ സ്വീകരിച്ചത് ഇന്നലെയാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

അടുത്തിടെ യു

അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം

സ്വർണ്ണവിലയിൽ മാറ്റമില്ല

രാജ്യസഭയിൽ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം സർക്കാർ നിയോഗിച്ച വിദഗ്ധർ അടങ്ങിയ ഉന്നതതല സമിതി വിഷയത്തിൽ കൃതൃമായ പരിശോധന നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി